നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും

ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ ജയം ദക്ഷിണാഫ്രിക്കയ്ക്ക്

വ്യാപാര ബന്ധം വികസന രംഗത്തെ സഹകരണം സാംസ്കാരിക വിനിമയം തുടങ്ങി പരസ്പര പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു

ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി ഭവനിൽ എത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം മൂന്നിനാണ് അവർ ഇന്ത്യയിലെത്തിയത്

സിംഗപ്പൂരിലെ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ഹെങ്ങ് സ്വീ ക്വീറ്റുമായി ഇന്നലെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച തൂടത്തി

ഡി എ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളെ അനുകൂലിക്കുന്നതായി സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ഔദ്യോഗിക കുരിപ്പിൽ വ്യക്തമാക്കി

ഇന്ത്യ അമേരിക്ക സൌഹൃദത്തെക്കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും പ്രസംഗത്തിൽ നാൻസി പെലോസി നടത്തിയ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നടപടികളാണ് കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നതെന്ന് പ്രസംഗത്തിൽ നാൻസി പെലോസി പരാമർശിച്ചിരുന്നു

ഭീകരത തീവ്രവാദം അഴിമതി ആയുധക്കടത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ മയക്ക് മരുന്ന് കടത്ത് കാലിക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ശ്രീ

അതിർത്തിയിലെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഡയറക്ടർ ജനറൽമാരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു

ഇക്കാര്യത്തിൽ ഈ രാജ്യങ്ങളുടെയും നിലപാട് പക്ഷപാതപരമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി

കശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിൽ തുർക്കി കശ്മീർ വിഷയ്ടം ഉയർത്തുന്നതിന് മുൻപ് കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മലേഷ്യൻ പ്രധാനമന്ത്രി കശ്മീർ വിഷയത്തിൽ നടത്തിയ പ്രാമർശം അത്ഭുതപ്പെടുത്തിയെന്നും ശ്രീ

കശ്മീർ കാര്യത്തിൽ നിരവധി തവണൂപ്പ്ൽനമന്ത്രി നരേന്ദ്ര മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കവും ഇ്ഞ്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയുമായുള്ള നല്ല ബന്ധം കുണ്ക്കിലെടുത്ത് അനുചിതമായ പ്രസ്താവനകളിൽ നിന്ന് മുല്ലേഷ്യ ഒഴിഞ്ഞ് നിൽക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു പാകിസ്സ്മാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് അന്താരാഷ്ട്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല ഇന്ത്യയ്ക്കെതിരെ ജിഹാദ് നടത്തണമെന്ന ആഹ്വാനം ഗൌരവകരമാണെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആന്റ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് അഥവാ ഡിപാമിനാണ് ഓഹരി വിറ്റഴിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് നിതി ആയോഗും ഡിപാമും സംയുക്തമായി ചേർന്ന് ഏതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കണമെന്ന് തീരുമാനിക്കും നടപടി ക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്

നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഓഹരി വിറ്റഴിക്കലിലൂടെ ഒരു ലക്ഷം കോടിയിലേറെ സമാഹരിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്

പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള അടിസ്ഥാന സൌകര്യ വികസനം നിശ്ചിതസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഈ മാസം അവസാനത്തോടെ ഇടനാഴിയുമായി ബന്ധപ്പെട്ട നാലുവരി ദേശീയപാത പൂർത്തിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

വിവിധ സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യം വില്ല്യ്ക്ക്ക്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന് ഏക്യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് കേസിൽ അന്തിമവാദം കേൾക്കുന്നത്

ഇനി പുതിയ തെളിവുകൾ സമർപ്പിക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു

ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കും

ഇന്ത്യയ്ക്കെതിരായ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കൻ വനിതകൾ നേടുന്ന ആദ്യ വിജയമാണിത്

വനിതകളുടെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് അടുത്ത ബുധനാഴ്ച തുടക്കമാകും

ഇന്ത്യയ്ക്കുവേണ്ടി ആർ അശ്വിൻ അഞ്ച് പ്പീക്കൂറ്റുകൾ നേടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ദേശീയ റെക്കോഡ് തിരുത്തിയ പ്രകടനമാണ് അവിനാഷിന് ഒളിമ്പിക്സിലേക്ക് യോഗൃത നേടിക്കൊടുത്തത്

കേസുമായി ബന്ധപ്പെട്ട് മുംബൈയിലും സമീപപ്രദേശങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി ആറ് ഇടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര സഹകരണ ബാങ്കിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്

ഗൾഫ് മേഖലയിലെ നിക്ഷേപക സമൂഹത്തിന് നിക്ഷേപസൌഹൃദമായ കേരളത്തെ അടുത്തറിയാനും നിക്ഷേപസാധ്യതകൾ വ്യക്തമാക്കാനുമാണ് എൻ

ആർ ഐ ഇൻപെസ്റ്റ്മെന്റ് കമ്പനിയുടെ അനുബന്ധ കമ്പനിയായി എൻ

ഐ കൺസ്ട്രക്ഷൻ കമ്പനി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമത്തിൽ പറഞ്ഞു പ്രവാസികളുടെ പണം ഉൽപ്പാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുബായ് എയർപോർട്ട് റോഡിലുള്ള ലെ മെറിഡിയൻ ഹോട്ടലിലെ ദ ഗ്രേറ്റ് ബാൾ റൂമിൽ നടന്ന സംഗമത്തിൽ സ്പീക്കർ പി

ജയരാജൻ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയുവർ സംബന്ധിച്ചു